പുതുവർഷത്തെ വരവേറ്റു

മൂന്നു സേനകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മെച്ചപ്പെട്ട വിഭവ വിനിയോഗ നിർവഹണം സേനാ വിഭാഗങ്ങളുടെ മികച്ച രീതിയിലുള്ള സമന്വയം എന്നിവയ്ക്കായിരിക്കും മുൻഗണന നൽകുന്നതെന്നും ജനറൽ റാവത്ത് പറഞ്ഞു മൂന്ന് സേനകളോടും നിഷ്പക്ഷത പാലിക്കുമെന്നും ജനറൽ റാവത്ത് നൽകി ഉറപ്പ് സേനകൾക്ക് വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവണെ വ്യോമസേനാ മേധാവി മാർഷൽ രാകേഷ് കുമാർ സിംഗ് ഭഡൌരിയ നാവിക സേനാ മേധാവി കരംബീർ സിംഗ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു

ഏത് സുരക്ഷാവെല്ലുവിളികളും നേരിടാൻ സേന സുജ്ജ്മാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഥാനമൊഴിഞ്ഞ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിൽ നിന്നും ജനറൽ നരവാണെ ബാറ്റൺ ഏറ്റുവാങ്ങിയ ശേഷം ആദ്ച ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു അതിർത്തിയിൽ സമാധാനം തിരിച്ച് കൊുവരുന്നതോടെ ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്നും കരസേന മേധാവി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഏത് സാഹചര്യവും നേരിടാൻ സേനയെ സദാ സജ്ജമാക്കുന്നതിനും സേനയെ നവീകരിക്കുന്നതിനും താൻ മുൻതൂക്കം നൽകുമെന്നും ജനറൽ നരവണെ കൂട്ടിച്ചേർത്തു

കായിക മേഖല കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പ്രാദേശിക ക്ലബ്ബുകളും അക്കാദമികളും സ്വയം പര്യാപ്തമായി വരുമാനം കത്തെണമെന്നും ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യപ്പെട്ടു

പഞ്ചായത്ത് തലത്തിൽ കായിക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായു സാമ്പത്തിക സഹായത്തിന് അപേക്ഷ നൽകണമെന്നും വകുപ്പ് ഉദ്യോഗസ്ഥരോട് ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിച്ചു

ജെ

മഹാരാഷ്ട്രയിൽ എല്ലാ ജില്ലകളിലും തഹസിൽ മേഖലയിൽ ഐക്യദാർഢൃ ജാഥ നടത്തുമെന്ന് ശ്രീ അതാവാലെ പ്രസ്താവനയിൽ അറിയിച്ചു

ചന്ദ്രോപരിതലത്തിലെ ദക്ഷിണ ധ്രൂവത്തിൽ ബഹിരാകാശ പേടകം ഇറക്കുന്നതിനാണ് ഐ എസ് ആർ ഒ പദ്ധതിയിട്ടത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏറ്റുമുട്ടൽ തുടരുന്നതായി രാജ്യരക്ഷാ വക്താക്കൾ അറിയിച്ചു

വനപരിപാലനത്തിൽ മികച്ച നേട്ടമാണിത് ഫോറസ്റ്റ് സർവ്വേ ഓഫ് ഇന്ത്യയുടെ ദൈവാർഷിക റിപ്പോർട്ട് പ്രകാരം വനമേഖല പരമാവധി വർദ്ധിച്ച രണ്ട് സംസ്ഥാനങ്ങൾ ഡറാഡൂണും ജമ്മുകശ്മീരുമാണ്

എസ് സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന് നിരോധനം പിൻവലിച്ചു ഓഗസ്റ്റ് അഞ്ച് മുതലാണ് എസ് എം

കഴിഞ്ഞ് രാത്രി എസ് എം

ജമ്മു ക്ശ്മീരിലെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കതുവ ജില്ലയിലെ ലഖൻപൂർ അനന്ത്നാഗ് ജില്ലയിലെ ലോവർമുണ്ട റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ടോൾ ബൂത്തുകൾ ഇന്ന് മുതൽ നിർത്തലാക്കി

വൃവസായ ഉത്പാദന മേഖലകളിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഗവൺമെന്റ് ഉപദേഷ്ടാവ് കെ

ശർമ്മയുടെ നേതൃത്വത്തിൽ ഉന്നത തല സമിതി രൂപീകരിക്കുമെന്നും ശ്രീ കൻസാൽ പറഞ്ഞു

പൌരത്വവുമായി ബന്ധപ്പെട്ട ഏത് നിയ്മ്പു്ം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ്ണെന്നും നിയമസഭയ്ക്ക് ഇതിന് അധികാരം ഇല്ലെന്നും ്നിയ്മം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയ്ക്സ്ട് പ്രമേയം പാസ്സാക്കിയതിനെ പരാമർശിക്കവേ കേന്ദ്രമീന്തി പറഞ്ഞു പൌരത്വഭേദഗതി നിയമം രാജ്യത്തെ ഒരു പൌരനും എതിരല്ലെന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ പീഢനം അനുഭവിക്കുന്ന ആറ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനാണ് നിയമം കൊണ്ടുവന്നതെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

ചന്ദേൽ ജില്ലയിലെ ചമോൽ സജിർ തംപക്ക് റോഡിൽ നടന്ന ആക്രമണം പീപ്പിൾസ് ലിബറേഷൻ ആർമിയും മണിപ്പൂർ നാഗ പീപ്പിൾസ് ഫ്രണ്ടുമാണ് നടത്തിയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടി രണ്ട് സൈനികർക്ക് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ഇവരിൽ ഒരാൾ പിന്നീട് വീരമൃത്യുവരിച്ചു രണ്ട് തീവ്രവാദികളും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി

സംസ്ഥാന തലസ്ഥാനമായ ലഖ്നൌവിൽ ശീതക്കാറ്റിലും മഞ്ഞ് വീഴ്ചയിലും ജനജീവിതം തടസ്സപ്പെട്ടു

കനത്ത മഞ്ഞുവീഴ്ചയിൽ നിരവധി ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്

അതിനുശേഷം യു എസ് ചൈന വ്യാപാര ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് താൻ ബീജിംഗിലേക്ക് പോകുമെന്നും പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ട്വീറ്റർ സന്ദേശത്തിൽ അറിയിച്ചു കരാറിന്റെ ആദ്യ ഘട്ടമായി നികുതി കുറയ്ക്കാൻ അമേരിക്കയും വലിയ അളവിൽ അമേരിക്കൻ കാർഷികോൽപന്നങ്ങൾ വാങ്ങാൻ ചൈനയും കഴിഞ്ഞ മാസം തീരുമാനമെടുത്തിരുന്നു

ഒരു റിപ്പോർട്ട്

ഗോവയിലെ വിവിധ കടൽത്തീരങ്ങളിലും പുതുവർഷ ആഘോഷ പരിപാടികൾ നടന്നു പിപിധ സ്ഥലങ്ങളിലെ സംഗീത സന്ധ്യകളിലും സാംസ്കാരിക പരിപാടികളിലും വിനോദസഞ്ചാരികളും പങ്കെടുത്തു രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് നവവത്സര ആശംസകൾ നേർന്നു

അഞ്ചു പേരെ കാണാനില്ല

ഇന്നലെ രാജ്യത്തിന്റെ തെക്കു കിഴക്കു ഭാഗത്തുായ കാട്ടുതീ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പടരുകയായിരുന്നു പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ട് ആയിരങ്ങളാണ് അവിടെ തിങ്ങിക്കൂടിയിരുന്നത്

ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജ യന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭയുടെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ചെയ്യും പൊതുവേദിയാണ് ലോക കേരള സഭ എന്ന ആശയത്തിനു പിന്നിൽ